ജെ പി സ്ഥാനാർഥി ത മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തും

കൂടുതൽ വിവരങ്ങളുമായി റജ്ന കെ

കൊല്ലത്ത് മൂന്നും പത്തനംതിട്ടയിൽ രണ്ടും പത്രിക സമർപ്പിച്ചു

പ്രമുഖ മുന്നണികളുടേയും പാർട്ടികളുടേയും സ്ഥാനാർഥികൾ വരുന്ന മൂന്ന് ദിവസങ്ങളിൽ പത്രിക നൽകുന്നതോടെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രത്തിന് വ്യക്തത ലഭിക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി രും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറു സീറ്റുകളിലേക്ക് കൂടി കോൺഗ്രസ് സ്ഥാനാർഥികളെ പ്രഖ്യാപിച്ചു കൽപറ്റയിൽ കോഴിക്കോട് മുൻ ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദീഖ് കുണ്ടറയിൽ പി സി വിഷ്ണുനാഥ് വട്ടിയൂർകാവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവ് വീണ എസ് നായർ എന്നിവരാണ് സ്ഥാനാർഥികൾ

ധർമ്മടത്ത് സ്ഥാനാർഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല രും കണ്ണൂർ ധർമടത്ത് മുഖ്യമന്ത്രിക്കെതിരെ മത്സരിക്കുന്ന വാളയാർ പെൺകുട്ടികളുടെ അമ്മയ്ക്ക് പിന്തുണ നൽകുന്ന വിഷയം പരിഗണനയിലാണെന്ന് കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു

ഡി എഫ് നേതാക്കളുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും പിണറായി വിജയനെതിരെ മത്സരിക്കാൻ വാളയാർ പെൺകുട്ടികളുടെ അമ്മയെടുത്ത തീരുമാനം ഉചിതമാണെന്നും അതോടെ തെരഞ്ഞെടുപ്പിന്റെ തലം മാറിയെന്നും മുല്ലപ്പള്ളി വിലയിരുത്തി ലതിക സുഭാഷ് വിഷയം അടഞ്ഞ അധ്യായമാണെന്നും കെ

സി സി പ്രസിഡന്റ് പറഞ്ഞു നേമത്ത് കോൺഗ്രസും ബി ജെ

രംഭ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ചേർന്നാൽ കേരളത്തിന്റെ വികസന കുതിപ്പിന് ഇരട്ട എഞ്ചിൻ ഘടിപ്പിച്ച എൻ ഡി എ ഗവൺമെന്റുകളെ ലഭിക്കുമെന്ന് ത്രിപുര മുഖ്യമന്ത്രി ബിപ്പവ്കുമാർദേബ് പറഞ്ഞു കേരളം പോലൊരു സംസ്ഥാനത്ത് അധികാരം ലഭിച്ചാൽ ബി ജെ പിക്ക് അത്ഭുതങ്ങൾ കാഴ്ചവെക്കാൻ ആകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനെത്തിയതായിരുന്നു ത്രിപുര മുഖ്യമന്ത്രി രും കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ ബി ജെ

ഇതു സംബന്ധിച്ച കേന്ദ്ര നേതൃത്വത്തിന്റെ അറിയിപ്പ് ശോഭാ സുരേന്ദ്രന് ലഭിച്ചു

നേരത്തെ കഴക്കൂട്ടം ഒഴിവാക്കിയാണ് ബി ജെ പി സ്ഥാനാർഥി പട്ടിക പ്രഖ്യാപിച്ചത് രുര മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വയനാട് ജില്ലയിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും

രുഭ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കും വൈകീട്ട് ഏറനാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് യോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും നാളെ നാലിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി ഏലംകുളത്ത് ഇ

എസ് സാംസ്കാരിക സമുച്ചയവും ഉദ്ഘാടനം ചെയ്യും രംഭ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നേമം നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർഥി കെ മുരളീധരൻ ഇന്നലെ വൈകീട്ട് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി

എഫിലെ വി ശിവൻകുട്ടിയും എൻ

എയുടെ കുമ്മനം രാജശേഖരനുമാണ് മണ്ഡലത്തിലെ മറ്റു സ്ഥാനാർഥികൾ രണ്ടു പേരുടേയും പ്രചാരണം മണ്ഡലത്തിൽ ഉൌർജ്ജിതമായി തുടരുകയാണ്

സി ചാക്കോ എൻ

പിയിലേക്ക് എത്തിയത് കേരളത്തിലെ പ്രവർത്തകരെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമാണെന്ന് മന്ത്രി എ

അദ്ദേഹത്തെ പോലെ ഉന്നതനായ ഒരു നേതാവിന്റെ സാന്നിധ്യം സംസ്ഥാനത്ത് എൻ

പിക്ക് ശക്തി പകരുമെന്നും ശശീന്ദ്രൻ കോഴിക്കോട്ട് അഭിപ്രായപ്പെട്ടു

നാടൻ പാട്ടുകളും പരുന്താട്ടവും ഗദ്ദികയും കോർത്തിണക്കിയാണ് ഗ്രാമങ്ങളിലേക്ക് വോട്ടുവണ്ടിയുടെ യാത്ര ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരെയും പങ്കാളികളാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് വോട്ടുവണ്ടിയുടെ യാത്ര

ഈ ബൂത്തുകളിലെ ഉദ്യോഗസ്ഥർ മുഴുവൻ വനിതകളായിരിക്കും

രും കോഴിക്കോട് ജില്ലയിൽ സ്ഥാനാർഥി ചിത്രം തെളിഞ്ഞതോടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി

വിശദാശംങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർബാബു

ടെസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവു വന്നിട്ടില്ലെന്നും വാക്സിനേഷൻ ഫലപ്രദമായി നടപ്പാക്കി വരികയാണെന്നും അദ്ദേഹം കണ്ണൂർ പിണറായിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രോഗ വ്യാപനം ഇപ്പോൾ ഏറ്റവും കുറവാണ് കോവിഡിനെ ഭയപ്പെടുകയല്ല ജാഗ്രതയോടെ പ്രതിരോധിക്കുകയാണ് വേണ്ടതെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ ശ്രദ്ധ ഉണ്ടാവണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

തെരഞ്ഞെടുപ്പ് കാലത്ത് ചൂടിനെ വകവയ്ക്കാതെ പ്രചാരണത്തിനിറങ്ങുന്നവർ സൂക്ഷിക്കണമെന്നും നിർദേശമുണ്ട്

കണ്ണൂർ ജില്ലയിൽ ഇന്നുമുതൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ കോവിഡ് വാക്സിനേഷൻ നൽകുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു

വൈകീട്ട് അഞ്ചിനകം രക്ഷിതാക്കളാണ് അപേക്ഷ നൽകേണ്ടത്

എം നിലയത്തിന്റെ സ്ഥാപക സ്റ്റേഷൻ ഡയറക്ടറായിരുന്ന അദ്ദേഹം കോഴിക്കോട് തൃശൂർ നിലയങ്ങളിലും സ്റ്റേഷൻ ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്